വിജയകരമായി വിക്ഷേപിച്ചു

സംഘടനകളുടെ രജിസ്ട്രേഷൻ ഗവൺമെന്റ് സസ്പെന്റ് ചെയ്തു

ഇന്ന് സമ്മാനിക്കും

നീക്കാൻ എൻ ക്ഐ യ്ക്ക് ബോംബെ ഹൈക്കോടതി നിർദ്ദേശം

സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും

വാർത്താ വിനിമയ സംവിധാനങ്ങൾ തടസ്സം കൂടാതെ തുടരാൻ ജി

ഒ അറിയിച്ചു

സാറ്റ് ശൃംഖല ടെലിവിഷൻ സംപ്രേഷണം ഡിജിറ്റൽ വാർത്ത്പൂ ശേഖരണം ഡി ടി എച്ച് ടെലിവിഷൻ സംവിധാനം തുടങ്ങി ന്ദിരവ്ധി കാര്യങ്ങൾക്ക് ഉപഗ്രഹം പ്രയോജനപ്പെടും

ഒ കളുടെ അംഗീകാരം കേന്ദ്രഗവൺമെന്റ് സ്പെൻഡ് ചെയ്തു ഫണ്ട് ശേഖരിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ ഈ സംഘടനകൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രാലയം അറിയിച്ചു ദേശീയ താൽപ്പര്യം മുൻനിർത്തി ചട്ടങ്ങൾ പ്രകാരം മാത്രമേ വിദേശത്ത് നിന്ന് പണം ശേഖരിക്കാവൂ എന്നാണ് നിയമം നിയമാനുസൃത മാർഗ്ഗത്തിലൂടെയാണ് പണം ശേഖരിച്ചതെന്ന് തെളിയിച്ചാൽ നടപടി പിൻവലിക്കാമെന്നും ആഭ്യന്തരമന്ത്രാലയം വൃക്തമാക്കി

ഒരു ലക്ഷം രൂപയും താമ്രപത്രവും അംഗവസ്ത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം രാഷ്ട്രപതി ഭവനിലാണ് പുരസ്കാരദാന ചടങ്ങ് നടക്കുക

അന്വേഷണത്തിലുള്ള തടസ്സങ്ങൾ നീക്കാൻ എൻ ഐ എ യ്ക്ക് ധാർമ്മിക ബാധ്യതയുണ്ടെന്ന് ബഞ്ച് വ്യക്തമാക്കി

ഇന്നലെ നാഗ്പൂരിൽ ഗുരുകുൽ കവികുൽഗുരു കാളിദാസ് സംസ്കൃത സർവകലാശാലയിലെ ചടങ്ങിൽ സംസാരിക്കവെ വിവിധ ശാസ്ത്ര വിജ്ഞാന ശാഖകളുടെ ഉറവിടം സംസ്കൃതത്തിൽ നിന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സ്കൂൾകുട്ടികളോട് സംസ്കൃത ഭാഷയിൽ താൽപ്പര്യം വളർത്തിയെടുക്കണമെന്ന് ശ്രീ ഗഡ്കരി ആഹ്വാനം ചെയ്തു ഇന്ത്യൻ സംസ്ക്കാരത്തിന്റെ ഭാഷയായ സംസ്കൃതം ജനതയുടെ ആത്മവികസനത്തിനും അത്യാവശ്യമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ആഗോളതലത്തിൽ യോഗയ്ക്കും ആയുർവേദിത്തിനും സംസ്കൃതത്തിനും പ്രചാരം വർദ്ധിച്ചുവരുന്ന അവസര്യത്തിൽ സംസ്കൃതഭാഷയുമായി ബന്ധപ്പെട്ട് വരുന്ന മിഥ്യാധാരണകൾ ്മാറ്റ്റ്ണ്ടതുണ്ടെന്നും ശ്രീ ഗഡ്കരി കൂട്ടിച്ചേർത്തു

പിഴ ചട്ടലംഘനം നടത്തിയ രണ്ട് കേസുകളിലാണിത്

ചെക്കിടപാടിലെ നിബന്ധനകൾ പാലിക്കാത്തതിനാണ് ആക്സിസ് ബാങ്കിനും യൂക്കോ ബാങ്കിനും പിഴയിട്ടതെന്ന് ആർ

ഐ അറിയിച്ചു

സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും ആയുഷ് ആരോഗൃ മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും സമ്മേളനത്തിൽ പങ്കെടുക്കും ദേശീയ ആയുഷ് ദൌത്യം ആയുഷ് സേവനങ്ങളും ആയുഷ്മാൻ ഭാരതും തമ്മിൽ സംയോജിപ്പിക്കൽ മരുന്നുകളുടെ ഗുണനിലവാര നിയന്ത്രണം ഡ്രഗ്സ് സെൻട്രൽ സെക്ടർ സ്കീമുകൾ തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയാകും

പി പോലീസ് ഡയറക്ടർ ജനറൽ അതുലിന്റെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘമായിരിക്കും അന്വേഷണം നടത്തുക ആറ് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്

വിശദാംശങ്ങളുമായി നവനീത

പുനപരിശോധനാ ഹർജികളും റിട്ട് ഹർജികളും ദ്ദ്വേസം ബോർഡ് നൽകിയ സാവകാശ ഹർജികളുമാണ് പരമോന്നും കോടതി പരിഗണിക്കുന്നത്

തിരുവനന്തപുരത്ത് ഇന്നലെ വൈകിട്ട് ചേർന്ന ദേവസ്വം ബോർഡ് യോഗം ഹർജി പരിഗണിക്കുമ്പോൾ സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ച് ചർച്ച ചെയ്തു ശബരിമലയിൽ യുവതികൾ കയറിയതിനെ തുടർന്ന് ശുദ്ധികലശം നടത്തിയ തന്ത്രി നൽകിയ വിശദീകരണം ബോർഡ് യോഗം ചർച്ച ചെയ്തു

കേന്ദ്ര റെയിൽവേ മന്ത്രി പീയുഷ് ഗോയൽ കേന്ദ്ര സഹമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തെ അറിയിച്ചതാണിത് ഇതിനുപുറമെ രാജസ്ഥാനിൽ ദൂർഗ് ജയ്പൂർ ട്രയിൻ അജ്മീർ വരെയും ജയ്പൂർ കാമാഖ്യ ട്രയിൻ ഉദയ്പൂർ വരെയും നീട്ടിയിട്ടുണ്ട്

സി സി കേഡറ്റുകൾക്കും ഓഫീസർമുരുക്കും ഗവർണർ ജസ്റ്റിസ് പി

അഡീഷണൽ ഡയറക്ടർ ജനറൽ കിൽഗ്രാഞ്ചി ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ എസ്

ജോഷി തുടങ്ങിയ്വർ പങ്കെടുത്തു

നാസിക് മുതൽ മുംബൈ വരെയാണ് മാർച്ച്

പെൻഷൻ ആനുകൂലൃങ്ങൾ നൽകുക കടബാധൃതയിൽ നിന്ന് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നാൽപ്പതിനായിരം കർഷകർ പങ്കെടുക്കുമെന്നാണ് സമരം കണക്കാക്കുന്നത്

വേദ കൃഷ്ണമൂർത്തിയെ ഒഴിവാക്കി പ്രിയ പുനിയയെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക ആകാശവാണി

മറ്റൊരു മൽസരത്തിൽ സർവീസസ് തെലങ്കാനയുമായി ഏറ്റുമുട്ടും

സി ഇതുവരെ നിർമ്മിച്ചിട്ടുണ്ട്

ഇന്ത്യൻ പൌരന്മാർ ആരും ഒഴിവാക്കപ്പെടുന്നില്ലെന്നും വിദേശ പൌരന്മാർ ഉൾപ്പെടുന്നില്ലെന്നും ഉറപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ്സിംഗ് ആവർത്തിച്ച് വൃക്തമാക്കി

ശക്തികാന്ത ദാസ് ആർ ബി ഐ ഗവർണറായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ അവലോകനമാണിത് ആവശ്യമെങ്കിൽ റിപ്പോ റിവേഴ്സ് റിപ്പോ നിരക്കുകളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ യോഗം പരിഗണിക്കും